ടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും ന്യൂസിലാന്റിനെതിരായ പ്രനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്

സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക സർവ്വെ റിപ്പോർട്ട് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും സംസ്ഥാനത്തിന്റെ പൊതു സാമ്പത്തികനില കൃഷി അടിസ്ഥാന സൌകര്യവികസനം ആരോഗൃം തുടങ്ങിയ മേഖലകളെപ്പറ്റി വിശദമായ അവ ലോകനം റിപ്പോർട്ടിൽ ഉണ്ടാകും സംസ്ഥാന ആസൂത്രണ വകുപ്പ് വിവിധ ഗവൺമെന്റ് വകുപ്പുകളുടെ സഹായത്തോടെയാണ് റിപ്പോർട്ട് തയ്യാറാക്കി യത്

പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ബജറ്റിൽ പ്രത്യേക പാക്കേജ് ഉണ്ടായേക്കുമെന്നാണ് സൂചന ക്ഷേമ പെൻഷൻ വർദ്ധ ന ജനകീയ ആരോഗൃ ഇൻഷുറൻസ് തുടങ്ങിയ പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും

മഹാത്മാവിന്റെ താരതമൃങ്ങളില്ലാത്ത കർമ്മജീവിത ത്തിന് രാഷ്ട്രം ഇന്ന് പ്രണാമമർപ്പിക്കും

രാഷ്ട്രത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവരെ മുഴുവൻ ആദരിക്കാനും അനുസ്മരിക്കാനും അതുകൊണ്ടു തന്നെയാണ് ഈ ദിവസം തെരഞ്ഞെടുത്തത് ദിനാചരണത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി കര വ്യോമ നാവിക സേനാ മേധാവികൾ തുടങ്ങിയവർ ഗാന്ധി സമാധിയായ രാജ്ഘട്ടിൽ പുഷ്പചക്രം അർപ്പിക്കും

സംസ്ഥാന വ്യാപകമായി ആരോഗ്യവകുപ്പ് സ്പർശം കുഷ്ഠ രോഗ നിർമ്മാർ ജ്ജന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇടുക്കി കട്ടപ്പന നഗര സഭയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യാ പൌലോസ് പരി പാടി ഉദ്ഘാടനം ചെയ്യും അടൂരിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസി ഡന്റ് അന്നപൂർണ്ണാദേവി പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും സന്ദേശ റാലികളും സംഘടിപ്പിച്ചിട്ടുണ്ട്

ഇന്നലെ അന്തരിച്ച മുൻ കേന്ദ്ര മന്ത്രി ജോർജ് ഫെർണാണ്ടസിന്റെ ഭൌതികശരീരം അദ്ദേഹത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് എത്തിയശേഷം സംസ്കരിക്കും ന്യൂഡൽഹിയിലെ ലോധി ശ്മശാനത്തിൽ മൃതദേഹം ദഹിപ്പിച്ചശേഷം ചിതാഭസ്മം പൃഥീരാജ് റോഡിലെ സെമിത്തേരിയിൽ അടക്കം ചെയ്യാനാണ് തീരുമാനം മൃതദേഹം ദഹിപ്പിക്കണമെന്ന് ജോർജ് ഫെർണാണ്ടസ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഇന്നലെ പഞ്ച്ശീൽ പാർക്കിലെ വസതിയിൽ പൊതുദർശനത്തിന്വെച്ച മൃതദേഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ബിജെപി ദേശീയ പ്രസിഡന്റ് അമിത്ഷാ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടങ്ങിയവർ അന്ത്യോപ ചാരം അർപ്പിച്ചു അൽഷിമേഴ്സും പാർക്കിൻ സൺസ് രോഗവും ബാധിച്ച് ദീർഘകാലമായി അബോധാവസ്ഥ യിലായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ഇന്നലെ പുലർച്ചെയാണ് വിടവാങ്ങിയത്

കേന്ദ്രസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡീംഡ് സർവകലാശാലകൾക്കും ഉത്തരവ് ബാധകമാണ് ഉത്തരവിന് ഉടൻ പ്രാബ ല്യമുണ്ടാകും ് അയോധ്യയിൽ നിയമത്തിന്റെ വഴിയിൽ രാമക്ഷേത്രം നിർമ്മി ക്കാൻ ബി ജെ പി പ്രതിബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു ക്ഷേത്ര നിർമ്മാണത്തിൽ ഭരണഘടനാപ്രമായ എല്ലാ നടപടി ക്രമങ്ങളും പാലിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടു ണ്ടെന്ന് അദ്ദേഹം ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

കർണ്ണാടക പുതുച്ചേരി ഉത്തർപ്രദേശ് ആന്ധ്രപ്രദേശ് ഹിമാചൽ പ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങൾക്കാണ് അധികസഹായം നൽകുന്നത് ് തിരുവന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം സംസ്ഥാന ഗവൺമെൻ് ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി വിധിക്ക് എതിരായ ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും ഇന്നലെയാണ് കേസിൽ അന്തിമ വാദം ആരംഭിച്ചത് കേസിൽ അമിക്കസ് ക്യൂറിയായിരുന്ന ഗോപാൽ സുബ്രഹ്മണ്യം പിൻമാറിയതിനെ തുടർന്ന് പുതിയ അമിക്കസ് ക്യൂറിയെ നിയമിക്കുന്ന കാര്യം കോടതി ഇന്ന് പരിഗണിച്ചേക്കും ക്ഷേത്രത്തിന്റെ ബി നിലവറ തുറക്കുന്നത് പിന്നീട് പരിഗണിക്കാമെന്ന് കോടതി ഇന്നലെ വൃക്തമാക്കിയിരുന്നു

കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് സമൂഹം വലിയ ജാഗ്രത കാണിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിന് ന പൊതുജനങ്ങളെ ബോധവത്കരിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ചടങ്ങിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി രുന്നു

ഇന്ത്യക്ക് ഇന്നലെ മൌണ്ട് മോൺഗന്യയിലെ രണ്ടാം ഏകദിന മത്സരത്തിൽ എട്ട് വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം

മലപ്പുറത്ത് ദേശീയ പൊലീസ് ഫുട്ബോളിൽ നിലവിൽ ചാമ്പ്യന്മാരായ ബിഎസ്എഫിന് വിജയത്തുടക്കം കേരളത്തിന് രണ്ടാം മത്സരത്തിലും തകർപ്പൻജയം എതിരില്ലാത്ത് മൂന്നുഗോളിന് അവർ ഉത്തർപ്രദേശിനെ തോൽപ്പിച്ചു മഹാരാഷ്ട്ര സിഐഎസ്എഫ് അസം റൈഫിൾസ് പഞ്ചാബ് മേഘാലയ ബംഗാൾ ടീമുകളും രണ്ടാംജയം നേടി ജമ്മുകശ്മീർ ആർപിഎഫ് മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു

കൊല്ലത്ത് ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിലെ ഡിവിഷൻ ബി കാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്നാരംഭിക്കും രാവിലെ ആദ്യമത്സരത്തിൽ ഭോപ്പാൽ ബെങ്കലുരു ഹോക്കി അസോസിയേഷനെ നേരിടും ഒമ്പതരയ്ക്ക് കേരളം അസമിനെ നേരിടും ഉച്ചകഴിഞ്ഞ് തമി ഴ്നാട് ആന്ധ്ര മത്സരവും പട്യാല ഗുജറാത്ത് സായ് മത്സരവും നടക്കും

ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്സി ഇന്ന് മോഹൻബഗാനുമായി ഏറ്റുമുട്ടും

കളമ ശ്ശേരി സെന്റ് പോൾസ് കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ ഒമ്പതരയ്ക്കാണ് മത്സരം

സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഏറ്റവും പിന്നോക്കം നിന്ന കാസർകോട് ജില്ലയെ മുൻനിരയിലെത്തിക്കാ നാണ് പദ്ധതി നടപ്പാക്കുന്നത്

കരുണാകരൻ എം

ഉദ്ഘാ ടനം ചെയ്യും ഭരണഘടനാ മൂലൃങ്ങളെകുറിച്ചും മതന്നിരപേക്ഷതയെപ്പറ്റിയും അധ്യാപകർ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കണമെന്ന് മന്ത്രി ടി

രാമ കൃഷ്ണൻ നിർദ്ദേശിച്ചു പാഠ്യേതര വിഷയങ്ങളാണെങ്കിൽപോലും ഇത്തരം മൂല്യങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ അധ്യാപകർ മുൻകൈ എടു ക്കണം കോഴിക്കോട് പേരാമ്പ്ര ഗവൺമെന്റ് യു

സ്കൂളിൽ സ്മാർട്ട് ക്സാസ് മുറിയും പുതിയ കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാസർകോട്ടെ എൻഡോസൾഫാൻ ഇരകൾക്കായി പ്രഖ്യാപിച്ച പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരസ മിതിയുടെ അനിശ്ചിതകാല നിരാഹാരസമരം ഇന്ന് തുടങ്ങും എൻഡോ സൾഫാൻ ഇരകൾക്ക് ചികിത്സ തുടർസഹായം എന്നിവ നടപ്പാക്കണമെ ന്നാവശ്യപ്പെട്ടാണ് സമരം

ണങ്ങളുയർന്നപ്പോൾ ഐ എസ് ആർഒയിലെ സഹപ്രവർത്തകരടക്കം ശാസ്ത്രസമൂഹം പ്രതികരിക്കാൻ വൈകിയത് ഇന്നും വേദനിപ്പിക്കുന്ന ഓർമ്മ യാണെന്ന് പ്രശസ്ത ശാസ്ത്രജ്ഞൻ നമ്പിനാരായണൻ പറഞ്ഞു നിരപരാ ധിയാണെങ്കിലും അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന് തനിക്ക് മുൻകൂട്ടി അറിയാമാ യിരുന്നുവെന്ന് നമ്പിനാരായണൻ കോഴിക്കോട് എൻ ഐ ടിയിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കവെ അറിയിച്ചു

കോയമ്പത്തൂരിൽ കേരള തമിഴ്നാട് ജലവിഭവ വകുപ്പ് സംയുക്ത യോഗത്തിലാണ് തീരുമാനം ഇതുവഴി ചിറ്റൂർപുഴ പദ്ധതി പ്രദേശത്തിലെ രണ്ടാം വിള ജലസേചനം സാധ്യമാക്കാൻ കഴിയും

കൃഷി ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇന്നുരാവിലെ കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന ജലസംഗമത്തിൽ അവതരിപ്പി ക്കും

കണ്ണൂരിൽ സമാപിച്ച കൈരളി അന്താരാഷ്ട്ര സാംസ്കാരിക്കോത്സവത്തിലെ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ ചലച്ചിത്ര വികസന കോർപ റേഷൻ ഉറക്കത്തിലാണെന്നും അതിനെ ഉണർത്താൻ അത്ര എളുപ്പമല്ലെന്നും അടൂർ പറഞ്ഞു

ട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും

താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിലും ബി എൽ ഒ മാരുടെ കൈവശവും വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് ലഭ്യമാണ്

എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വികസന ഡോക്യുമെന്ററി യുടെ മൊബൈൽ പ്രദർശനവും പര്യടനവും ഉണ്ടാവും